വായ്പ നൽകുമെന്ന് ഇന്ത്യ പുതിയ സംരംഭങ്ങളുടെ സഹകരണത്തിന് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഓൺലൈൻ സംവിധാനത്തിന് തുടക്കമായി

യു എസ് ഓപ്പൺ ടെന്നീസിൽ റഫേൽ നദാൽ സെമിഫൈനലിൽ

പുതുസംരംഭങ്ങളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഓൺലൈൻ സംവിധാനം നിലവിൽവന്നു സ്റ്റാർട്ട് അപ്പുകൾക്കായുള്ള ഓൺലൈൻ സംരംഭത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ തുടക്കം കുറിച്ചു വിശദാംശങ്ങളുമായിതുളസിദാസ്

ഇതിനായുള്ള ഓൺലൈൻ സംരംഭത്തിന് ശ്രീ

ഇന്തൃക്കും റഷ്യക്കുമിടയിലെ സ്റ്റാർട്ട് അപ് ആവാസ വ്യവസ്ഥകളിലുള്ള അന്തരം കുറയ്ക്കുകയാണ് ഇതിലൂടെലക്ഷ്യ മിടുന്നത് റഷ്യയുടെ കിഴക്കൻ സാമ്പത്തിക ഫോറത്തിലെ പവലിയനും ശ്രീ

സാമ്പത്തിക ഫോറത്തിൽ സംഘടിപ്പിക്കുന്ന പ്രധാന കായിക ഇനമായ അന്താരാഷ്ട്ര ജിഗാരോകാനോ ജൂഡോ ടൂർണമെന്റ് വീക്ഷിക്കാനായി ശ്രീ

വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന കിഴക്കൻ നേരത്തെ സാമ്പത്തിക ഫോറത്തിന്റെസമഗ്ര സമ്മേളനത്തേയും ശ്രീ

കിഴക്കൻ ഏഷ്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് തന്റെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്രത്തിന് പുതിയ മാനം നൽകുമെന്നും ശ്രീ

സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാകൃത്തിൽ പുതിയ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്തോ പസഫിക് മേഖലയിലെ സമാന സ്വഭാവമുള്ള വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു

ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ത്രിരാഷ്ട്ര ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നേതാക്കൾ ചർച്ചു ചെയ്തു മേഖലാ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യ ജപ്പാൻ അമേരിക്ക ത്രികക്ഷി ചർച്ച തുടരാനും ഇന്ത്യയും ജപ്പാനും തീരുമാനിച്ചു

മോദി അദ്ദേഹവുമായി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉല്പന്നങ്ങൾ ഇറക്കുമതിചെയ്ത്വ്യാപാര സന്തുലിതാവസ്ഥ ഉറപ്പാക്കുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി വാഗ്ദാനം നൽകി വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിനെ കൈമാറുന്ന കാര്യം പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഉദ്ചോസ്ഥർ മലേഷ്യയുമായി ചർച്ചകൾ തുടരുകയാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞു

ച്ചിദംബരത്തെ തിഹാർ ജയിലിലേക്കയക്കാൻ ഡൽഹിയിലെ പ്രത്യേക സിബിഐ കോടതി ഉത്തരവിട്ടു

അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന് സിബിഐ ആവശ്യപ്പെട്ടിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടടേറ്റ് എടുത്ത കേസിൽ ചിദംബരം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് ചിദംബരം സുപ്രീം കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യം കുറ്റാരോപിതരുടെ അവകാശമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു

അപകട മേഖലയായ ദക്ഷിണ ധ്രുവത്തിലാണ് വിക്രംലാന്റർ ഇറങ്ങുന്നത്

ചിത്രങ്ങളെടുത്ത് ഭൂമിയിലെ കൺട്രോൺ റൂമിലേക്ക് അയച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കുകയുമാണ് ചെയ്യുന്നത്

പ്രസ്സേവനങ്ങളെ മുൻ നിർത്തി അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ദേശീയ അധ്യാപകദിനത്തിൽ അവാർഡുകൾ സമ്മാനിച്ചത്

സത്യസന്ധത അച്ചടക്കം തുടങ്ങിയ മൂലൃങ്ങൾ യുവമനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടെന്ന് ശ്രീ കോവിന്ദ് അധ്യാപകരെ ഓർമ്മിപ്പിച്ചു

ജനാധിപത്യ രാഷ്ട്രത്തിൽ തുല്യതാ സ്വാതന്ത്ര്യം സാമൂഹ്യനീതി മതിനിരപേക്ഷത മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയവയുടെ പാഠങ്ങൾ അധ്യാപകരാണ് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുൻ രാഷ്ട്രപതി ഡോ സർവ്വേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപകദിനമായി ആചരിക്കുന്നത്

കൂടുതൽ പരിശീലകള്ര മ്സ്കിൽ ഇന്ത്യാ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് അവാർഡ് ദാനചടങ്ങിുഉകാണ്ട് ഉദ്ദേശിക്കുന്നത്

വ്യവസായവത്കരണത്തിൽ ത്രാജ്യപുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഘടകം നൈപുണ്യമുള്ള തൊഴിൽ ശക്തിയുടെ അഭാവമാണെന്ന് വകുപ്പ് സഹമന്ത്രി രാജ്കുമാർ സിംഗ് പറഞ്ഞു ഇത് വലിയൊരളവോളം പരിഹരിക്കാൻ സ്കിൽ ഇന്ത്യ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിൽ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പുരസ്ക്കാരങ്ങൾ സമ്മാനിക്കും

പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി രാജ്യവ്യാപകമായ പ്രചാരണവും സംഘടിപ്പിച്ചിട്ടുണ്ട്

നൈപുണ്യ വികസന പരിപാടിയില്ലെ സ്ത്രീകളുടെ വർദ്ധിച്ച പങ്കാളിത്തത്തേയും അദ്ദേഹം പ്രകീർത്തിച്ചു

വീഡിയോ കോൺഫറൻസിംഗിലൂടെ പെൻഷൻ അദാലത്തുകൾ സംഘടിപ്പിച്ചതും പെൻഷൻ പോർട്ടലിന്റെ ഉപയോഗം ലളിതമാക്കിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി ജോസ് ടോം നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി

ചിഹ്നം ലഭിക്കാതെ വന്നതോടെ ജോസ് ടോം യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കും രണ്ടില ചിഹ്നം വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്ന പി ജെ ജോസഫിന് അനുകൂലമായിരുന്നു വരണാധികാരിയുടെ തീരുമാനം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോസ് ടോം നൽകിയ പത്രിക തള്ളിയതോടെ പി ജെ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ ജോസഫ് കണ്ടത്തിൽ പത്രിക പിൻവലിച്ചു

തുടർ സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും

ഇരുപതാം സീഡ് അർജന്റീനയുടെ ഷാറ്റ്സ്മാനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നദാൽ അവസാന നാലിൽ ഇടം പിടിച്ചത്

ദ്യോക്കോവിച്ചും റോജർ ഫെഡററും പരാജയപ്പെട്ടതോടെ അവശേഷിക്കുന്ന ഏകമുൻനിരതാരമായി റാഫേൽ നദാൽ